്സുപ്രധാന ബില്ലുകൾ പാസാക്കി പാർലമെന്റ്

സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെട്ടെയ്ുള്ള മേഖലകളിലെ ന് സഹകരണത്തിന് ഇന്ത്യ ഇസ്രയേൽ ധാരണ

കേരളത്തിൽ സമ്പർക്ക രോഗബാധിതർ വർദ്ധിക്കുന്നു

രോഗബാധ രൂക്ഷമായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആരോഗൃമന്ത്രിമാർ എന്നിവരുമായാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിങ്ങ് വഴി നടത്തുന്നത്

മഹാരാഷ്ട്രയിൽ മരണനിരക്ക് രണ്ട് ശതമാനത്തിന് മുകളിലാണ്

രാജ്യത്തിന്റെ വികസനത്തിന് സാങ്കേതിക്കുവീദ്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടിയായി വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് പറഞ്ഞു കമ്പനീസ് ഭേദഗതി ദേശീയ ഫോറൻസിക് സയൻസ് സർവകലാശാല ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി രാഷ്ട്രീയരക്ഷാ സർവകലാശാല ബിൽ എന്നിവയാണ് രാജ്യസഭ ഇന്നലെ പാസാക്കിയത് ഈ നിയമങ്ങൾക്ക് നേരത്തെ ലോകസഭയുടെ അംഗീകാരം ലഭിച്ചിരുന്നു

നാല് തൊഴിൽ കോഡുകൾ സുതാര്യമാക്കി വിദേശ ആഭ്യന്തര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നിർണായകമായ പരിഷ്ക്കാരങ്ങളാണ് നടന്നതെന്ന് ശ്രീ ഗാംഗ്വർ ചൂണ്ടിക്കാട്ടി

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല നിയമങ്ങളിലും ഭേദഗതി വരുത്തേണ്ട സാഹചരൃമാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അറിയിച്ചു

ബില്ലിലെ വിവിട്ടു വ്യ്യവസ്ഥകളെക്കുറിച്ച് ധാരണയില്ലാത്തത് മൂലമാണ് ഡി

കെ അനാവശ്യമായി പ്രതിഷേധിക്കുന്നതെന്നുപ്പശ്ചീ

ഇസ്രയേൽ സ്റ്റാർട്ടപ്പ് നേഷൻ സെൻട്രലും ഇന്ത്യയുടെ ഇന്റർ നാഷണൽ സെന്റർ ഫോർ എന്റർപ്രണർഷിപ്പ് ആന്റ് ടെക്നോളജിയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്

വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നടന്ന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുപം ജലോഠയും ഇസ്രയേലിനെ പ്രതിനിധീകരിച്ച് പ്രൊഫ

ഇന്ത്യയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫ

ഇസ്രയേലിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജീവ് കുമാർ സിംഗ്ല ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാനി എന്നിവർ ആശംസിച്ചു

തന്ത്രപരമായ സഹകരണം പങ്കിടുന്ന ഇന്ത്യയും ഇസ്രയേലും വിവിധ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്

അപകട്ടിത്ത് തുടർന്ന് പരിസര പ്രദേശത്തെ രണ്ട് കെട്ടിടങ്ങൾ കൂട്ടി ഭീവണ്ടി നിസാംപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒഴിപ്പിച്ചു ഈ കെട്ടിടങ്ങൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചും പ്പിണ്ണീട് തീരുമാനം എടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു

ഒരിക്കലും ഒരു തരത്തിലുമുള്ള മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും ദിയ മിർസ അറിയിച്ചു

കെ അദ്ധ്യക്ഷൻ എം

സ്റ്റാലിൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു കാവേരി നദീജല തർക്ക ട്രൈബ്യൂണലിന്റെയും സുപ്രീംകോടതിയുടെയും ഉത്തരവുകൾക്ക് വിരുദ്ധമാണ് മേക്കേഡാട്ടുവിലെ പുതിയ പദ്ധതിയെന്നും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ശ്രീ

കോവിഡ് ബാധിച്ച് ദ്വീപ്പേരുടെ മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്

അഞ്ചരലക്ഷം പേർക്കാണ് തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ചത്

അഞ്ചുലക്ഷം പേർ രോഗമുക്തരായി

ബ്രസീൽ മെക്സിക്കോ റഷ്യ ഇറാൻ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ പ്രതിദിനം കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർധിക്കുകയാണ്

വാക്സിൻ കണ്ടെത്താത്ത പക്ഷം രോഗവ്യാപനത്തിന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകും യൂറോപ്പിൽ രണ്ട്ടാംഘട്ടം എത്തിക്കഴിഞ്ഞു വാക്സിൻ മാത്രമാണ് ഏക പോംവഴിയെന്നും ഡോ

മലയാളി താരം സഞ്ജു സാംസണിന്റെയും ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിന്റെയും അർദ്ധ സെഞ്ചുറികളുടെ മികവിലാണ് രാജസ്ഥാൻ റോയൽസ് വിജയം കണ്ടത്

ഫിലിംസ് ഡിവിഷന്റെ വെബ്സൈറ്റിലും യൂ ട്യൂബ് ചാനലിലും ഇവ സൌജന്യമായി കാണാൻ സാധിക്കും സിത്താരാ ദേവി യാമിനി കൃഷ്ണമൂർത്തി കനക് റേലേ എന്നീ ചലച്ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും

മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഗോവ മുൻമുഖ്യമന്ത്രി ദിഗംബർ കമ്മത്ത് എന്നിവരും ആശാലതയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു ഹിന്ദി മറാഠി നാടകങ്ങളിലും ചലച്ചിത്രങ്ങളിലും മികച്ച നടി കവയിത്രി ഗായിക എന്നീ നിലകളിൽ ആശാലത ജനശ്രദ്ധ നേടി

കേരള കർണ്ണാടക തീരത്തും ലക്ഷദ്വീപ് മേഖലയിലും ശക്തമായ കാറ്റിന് സാധൃതയുണ്ട്